സർവ്വീസിൽ തിരിച്ചെടുക്കാനുള്ള കേന്ദ്ര അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ ഉത്തരവിൽ തീരുമാനം ആവശൃപ്പെട്ട് കേരള മുൻ വിജിലൻസ് മേധാവി ജേക്കബ് തോമസ്

എസ് ഡോളറിന്റെ ആഭ്യന്തര വളർച്ചാ നിരക്കുമായി ആഗോള സാമ്പത്തിക രംഗത്ത് സുപ്രധാന ശക്തിയായി ഇന്തൃ മാറിക്കൊണ്ടിരിക്കുകയാണെന്ന് രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ്

സബ്കാ സാത് സബ്കാ വികാസ് സബ്കാ വിശ്വാസ് എന്ന കാഴ്ചപ്പാടിലാണ് ഇന്ത്യ മുന്നേറുന്നതെന്ന് രാഷ്ട്രപതി പറഞ്ഞു ഈ വീക്ഷണത്തിലൂടെ ശക്തവും ഐശ്വര്യ സമ്പന്നവുമായ ഇന്ത്യ കെട്ടിപ്പടുക്കുകയാണ് ഗവൺമെന്റിന്റെ ലക്ഷ്യം ആഭ്യന്തര പുരോഗതിയ്ക്കു മാത്രമല്ല വിദേശ രാജ്യങ്ങളുമായുള്ള ബന്ധങ്ങൾക്കും ഈയൊരു കാഴ്ചപ്പാടാണ് ഇന്ത്യ മുന്നോട്ട് വയ്ക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു ബെനിന്റെ സമഗ്ര വികസനത്തിന് ഇന്ത്യ പ്രതിജ്ഞാബദ്ധമാണ്

എസ് ഡോളർ ധനസഹായം നൽകുന്നതിൽ ഇന്ത്യയ്ക്കുള്ള താത്പര്യം അദ്ദേഹം പ്രത്യേകം പരാമർശിച്ചു

എസ് ഡോളറിന്റെ ധനസഹായം കൂടി രാഷ്ട്രപതി പ്രഖ്യാപിച്ചു

കൂടുതൽ വിവരങ്ങളുമായി ബിന്ദു

പെട്ടെന്ന് മുത്തലാഖ് നടത്തുന്നത് വിലക്കുന്ന വൃവസ്ഥയാണ് ബില്ലിലുള്ളത്

മുത്തലാഖിന് ഇരയാകുന്ന ് സ്ത്രീകൾക്കും അവരുടെ കുട്ടികൾക്കും ജീവനാംശം നൽക്ക്സ്മൃതിനുള്ള വ്യവസ്ഥയും ഉൾപ്പെടുത്തിയിട്ടുണ്ട് ബിൽ നേരത്തെ ലോക്സഭ പാസാക്കിയിരുന്നു കോൺഗ്രസ് സമാജ്വാദി പാർട്ടി തൃണമൂൽ കോൺഗ്രസ് ഡി എം കെ തുടങ്ങിയ കക്ഷികളുടെ ഇ്റൂങ്ങിപ്പോക്കിനിടെയാണ് ബിൽ ലോക്സഭ പാസാക്കിയത്

എന്നാൽ ബിൽ സൂക്ഷ്മ പരിശോധനയ്ക്കായി പാർലമെന്ററി കമ്മിറ്റിക്ക് വിടണമെന്നാണ് പ്രതിപക്ഷ കക്ഷികളുടെ ആവശ്യം

രാജ്യത്തിന്റെ അമൂല്യമായ പാരമ്പര്യത്തെയും പൈതൃകത്തെയും കൂടുതൽ പേർക്ക് മനസിലാക്കുന്നതിന് ഇത് സഹായിക്കുമെന്ന് പ്രധാനമന്ത്രി ടിറ്ററിലൂടെ അറിയിച്ചു രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള ഈ പത്ത് ചരിത്ര പ്രസിദ്ധമായ കേന്ദ്രങ്ങളിലേക്ക് സന്ദർശകർക്ക് രാവിലെ ഒൻപത് മണി രാത്രി ഒൻപത് മണിവരെയാണ് മുതൽ സന്ദർശനം അനുവദിച്ചിരിക്കുന്നത്

മുഖ്യമന്ത്രി നിതീഷ്കുമാർ ഉപമുഖ്യമന്ത്രി സുശീൽ മോഡി എന്നിവരുമായി പ്രധാനമന്ത്രി ബീഹാറിലെ സ്ഥിതിഗതികളെ കുറിച്ച് വിലയിരുത്തി ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ കേന്ദ്ര ഗവൺമെന്റ് സംസ്ഥാന ഗവൺമെന്റുമായി സഹകരിച്ച് പ്രവർത്തിക്കുകയാണെന്നും ദുരിതബാധിതർക്ക് സഹായം എത്തിക്കുന്നതിന് കേന്ദ്രം എല്ലാ പിന്തുണയും നൽകുമെന്നും പ്രധാനമന്തി ട്വിറ്റർ സന്ദേശത്തിൽ അറിയിച്ചു

രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിങ്ങ് മൊസാർമ്പിയൻ പ്രതിനിധിയുമായി ഇന്നലെ നടത്തിയ നയതന്ത്രത്യലി തുടർന്നാണ് ധാരണാപത്രത്തിൽ ഒപ്പുവച്ചത് ത്രീരുമാന്ം ഇന്ത്യയും മൊസാബിക്കും തമ്മിലുളള പ്രതിരോധ ൃ ഉഭയകക്ഷി സഹകരണത്തിനും മുതൽക്കൂട്ടായിരിക്കുമെന്ന് രാജ്യരക്ഷാമന്ത്രാലയം വാർത്താക്കുറിപ്പിൽ അറിയിച്ചു്

ഹര്യാനയിലെ മനേസറിൽ ദേശീയ സുരക്ഷാ ഗാർഡിന്റെ എവറസ്റ്റിലേക്കുള്ള സാഹസിക യാത്രയുമായി ബന്ധപ്പെട്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം

ബിൽ ലോക്സഭ കഴിഞ്ഞ ആഴ്ച പാസാക്കിയിരുന്നു

ആറ് ബില്ലുകൾ ലോക്സഭയിലും നാല് ബില്ലുകൾ രാജ്യസഭയിലും മാത്രം പാസാക്കിയതായും കേന്ദ്രമന്ത്രി അറിയിച്ചു

തമിഴ്നാട് പുതുച്ചേരി ആന്ധ്രാപ്രദേശ് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ നിന്നാണ് ആസ്തികൾ കണ്ടുകെട്ടിയത് അഴിമതി കേസുമായി ബന്ധപ്പെട്ട് തിരിച്ചറിഞ്ഞിട്ടില്ലാത്ത കേന്ദ്ര സംസ്ഥാന ഉദ്യോഗസ്ഥർക്കെതിരെ സിബിഐ നേരത്തെ എഫ് ഐ ആർ സമർപ്പിച്ചിരുന്നു

ജി പി ജേക്കബ് തോമസ് കേരള ഗവൺമെന്റിന് കത്ത് നൽകി ട്രിബ്യൂണൽ ഉത്തരവിന്റെ പകർപ്പ് സഹിതമാണ് ചീഫ് സെക്രട്ടറിയ്ക്കും പൊതുഭരണ വകുപ്പിനും അദ്ദേഹം കത്ത് നൽകിയത് സംസ്ഥാന ഗവൺമെന്റ് മൂന്നുവട്ടം സസ്പെന്റ് ചെയ്ത മുൻ ഡി ജി പി ജേക്കബ് തോമസിനെ അടിയന്തരമായി സർവ്വീസിൽ തിരിച്ചെടുക്കാൻ കേന്ദ്ര അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ കഴിഞ്ഞ ദിവസമാണ് ഉത്തരവിട്ടത്

ഇന്ന് പൂലർച്ചെ റാവൽ പിണ്ടിയിലെ ജനവാസ മേഖലയിൽ ഉണ്ടായ അപകടത്തിൽ വിമാനത്തിലെ രണ്ട് പൈലറ്റ്മാരും കൊല്ലപ്പെട്ടതായാണ് റിപ്പോർട്ട്

നിരവധി പേർക്ക് ഗുരുതരമായ പരിക്കേറ്റതിനാൽ മരണസംഖ്യ കൂടിയേക്കാമെന്നും സൂചനയുണ്ട് അപകടത്തിന്റെ കാരണം അറിവായിട്ടില്ല

കൂടുതൽ വിവരങ്ങളുമായി ബിന്ദു

അതിർത്തിയിൽ ശാന്തിയും സമാധാനവും നിലനിർത്തുക ലക്ഷ്യമിട്ടാണ് ഇക്കാര്യവുമായി ബന്ധപ്പെട്ട സമിതി യ്യോഗം ചേർന്നത്

സൈനികതലത്തിലും നയതന്ത്രതലത്തിലുമുള്ളൂ ആൾയവിനിമയം നടക്കുന്നതിന്റെ പുരോഗതി യോഗം വിലയിരുത്തി

സഹകരണവും ആശയവിനിമയവും ശക്തമാക്കുന്നതിന് നിർദ്ദേശങ്ങൾ നൽകുകയും സമിതിയുടെ ലക്ഷ്യമാണ് ന്യൂസ് ഡെസ്ക് ആകാശവാണി

സമിതി അധ്യക്ഷ വസുന്ധര പഥക് മസൂദി കമ്മീഷൻ ഉദ്യോഗസ്ഥരുമായുള്ള യോഗത്തിലാണ് ഇക്കാര്യം അറിയിച്ചത് സ്ത്രീകൾക്കും കുട്ടികൾക്കും നേരെയുള്ള ആക്രമണങ്ങളെ തടയുന്നതിന് ശക്തമായ നടപടികൾ കൈക്കൊള്ളുമെന്നും അധ്യക്ഷ അറിയിച്ചു

കിഴക്കൻ ന്ാവിക കമാൻഡിലെ വൈസ് അഡ്മിറൽ അതുൽകുമാർ ജയിനാണ് കപ്പൽ നീറ്റിലിറക്കിയത് വിശാഖപട്ടണത്തെ നേവൽ ഡോക്യാർഡിലായിരുന്നു ചടങ്ങ് തെരച്ചിൽ രക്ഷാപ്രവർത്തനം ദുരിതാശ്വാസ പ്രവർത്തനം എന്നിവയ്ക്ക് കപ്പൽ ഉപയോഗിക്കും

ഫട്നാവിസ് കേന്ദ്രമന്ത്രി സ്മൃതി സ്ത്രീകളിലെയും കുട്ടികളിലെയും പോഷകാഹാരക്കുറവ് പരിഹരിക്കുന്നതിന് നടപ്പാക്കിയ പദ്ധതികളെ കുറിച്ചാണ് കേന്ദ്ര വനിത ശിശുക്ഷേമ മന്ത്രിയോട് മുഖ്യമന്ത്രി വിശദീകരിച്ചത്

എന്നാൽ നാസിക്കിലും കൊങ്കൺ തീരത്തും കനത്ത മഴ പെയ്യുകയാണ്

ഈ പ്രദേശങ്ങളിലെ ദുരിതബാധിതരെ സർവ്വെ നടത്തി കണ്ടെത്തുകയും തുടർന്ന് നഷ്ടപരിഹാരത്തുക നൽകുകയും ചെയ്യുമെന്ന് മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് അറിയിച്ചു